കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യത്തെ മാധ്യമങ്ങളുടെ പങ്ക് പ്രശംസനീയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

യോഗത്തിൽ പങ്കെടുക്കാൻ ക്ക്ന്ദ്രമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലേക്ക് തിരിച്ചു

റാഫേൽ യുദ്ധവിമാനങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്ന ചടങ്ങ് ഈ മാസം പത്തിന് അംബാല വ്യോമതാവളത്തിൽ നടക്കും

ബന്ധപ്പെട്ട മയക്കുമരുന്നു കേസിൽ നടി റിയ ചക്രബർത്തി അറസ്റ്റിൽ

ജയ്പൂരിലെ പത്രിക ഗേറ്റ് വീഡിയോ കോൺഫെറെൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി സോഫിയ ഡാനിയേൽ കോവിഡ് വ്യാപനത്തിനെതിരെ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ കൃത്യമായി ജനങ്ങളിൽ എത്തിച്ച് ബോധവത്കരണത്തിനായി മാധ്യമ ങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സ്ഥതന്ത്ര്യസമര പോരാട്ടത്തിൽ ഉയർന്ന് കേട്ട എല്ലാ പേരുകളും എഴുത്തുകാരുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു പുതിയ തലമുറ വായന ശീലമാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വീട് നിർമ്മിക്കുമ്പോൾ പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ പ്രത്യേക സ്ഥലം ഒരുക്കണമെന്നും കുടുംബാംഗങ്ങൾ ദ്രിവസവും ഒരു പുസ്തകം വായിക്കുന്നത് ശീലിമാക്കണമെന്ന്റ്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു പ്രാചീന സാഹിത്യത്തിന്റെ പ്രാധീർണ്ണത്തെ പരാമർശിച്ച പ്രധാനമന്ത്രി ഗൂഗിൾ ഗുരുവിന്റെയും ടിറ്ററിന്റെയും ഈ കാലത്തും പുതിയ തലമുറ അറിവ് നേടുന്നതിൽ ്വിമുഖത കാട്ടുന്നില്ലെന്നും അഭിപ്രായ പ്പെട്ടു ഇന്ത്യയുടെ ശ്ര്ബ്ദ്തോടൊപ്പം ഇന്ത്യൻ ഉത്പന്നങ്ങളും ആഗോള തലത്തിൽ ശ്ര്ദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവനും ഇന്ത്യയെ കേൾക്കാനും കൂടുതൽ ശ്രദ്ധിക്കാനും തുടങ്ങിയ തായും പ്രധാനമന്ത്രി പറഞ്ഞു രാജസ്ഥാനിലെ ജയ്പ്പൂരിൽ പത്രിക ഗേറ്റ് പത്രിക മാധ്യമ ഉടമകളാണ് ജവഹർലാൽ നെഹ്റു മാർഗിൽ നിർമ്മിച്ചിരിക്കുന്നത് പത്രിക ചെയർമാൻ എഴുതിയ രണ്ട് പുസ്തകങ്ങളും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഒരു ഘട്ടത്തിലും ഇന്ത്യൻ സൈനൃം അതിർത്തി ലംഘിക്കുകയോ യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല വെടിവെയ്പ്പ് അടക്കമുള്ള യാതൊരുവിധ നീക്കങ്ങളും ഇന്ത്യ യുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നും സൈനൃം അറിയിച്ചു നയതന്ത്ര സൈനിക തലങ്ങളിൽ ചർച്ചകൾ നടക്കുമ്പോഴും പ്രകോപനപരമായ നീക്കങ്ങൾ തുടരുന്നത് ചൈനയാണ് ഇന്ത്യ സംയമനം പാലിക്കുകയാണ് എന്നാൽ രാജ്യ താല്പര്യങ്ങൾക്കോ സുരക്ഷയ്ക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉയർന്നാൽ ഇന്ത്യ ശക്തമായി പ്രതികരിക്കുമെന്നും പശ്ചിമ കമാൻഡ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ വൃക്തമാക്കുന്നു

ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ടെല്സ്കോപ്പുകളിൽ രണ്ടെണ്ണം നിർമ്മിച്ചതുൾ പ്പെടെ ബഹിരാകാശ രംഗത്ത് റേഡിയോ തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയുടെ വികസനത്തിന് വിലപ്പെട്ട സംഭാവന കളാണ് സ്വരൂപ് നൽകിയിട്ടുള്ളതെന്നും രാഷ്ട്രപതി അനുസ്മരിച്ചു ബഹിരാകാശ റേഡിയോ തരംഗങ്ങളെ കുറിച്ചുള്ള ഗോവിന്ദ് സ്വരൂപിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ ലോകശ്രദ്ധ നേടിയിട്ടു ണ്ടെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു

കൌൺസിൽ യോഗത്തിൽ പങ്കെടു ക്കുന്നതോടൊപ്പം ഉഭയകക്ഷി കൂടിക്കാഴ്ചയും അദ്ദേഹം നടത്തും റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവുമായി ശ്രീ ജയശങ്കർ നാളെ ചർച്ച നടത്തും

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യോമസ്സേന്റാ മേധാവി എയർ ചീഫ് മാർഷൽ ആർ

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പാവപ്പെട്ട വഴിയോര കച്ചവടക്കാരെ സഹായിക്കാൻ ജൂൺ ഒന്നിനാണ് കേന്ദ്ര സർക്കാർ പിഎം സ്വനിധി ആരംഭിച്ചത്

പദ്ധതിയുടെ മൂന്ന് ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി വിർചലായി സംവദിക്കും

മൂന്നു ദിവസത്തെ ചോദ്യം ചെയ്യലിനു ശേഷമാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് രേഖപ്പെടുത്തിയത്

കഴിഞ്ഞ അഞ്ച് മാസത്തിനുള്ളിൽ രാജ്യത്തെ കോവിഡ് പരിശോധനയിലെ കാര്യ ക്ഷമത ഗണ്യമായി വർദ്ധിച്ചു പ്രതിദിന കോവിഡ് പരിശോധന കളുടെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ ലോകത്ത് ഒന്നാമതാണ് പരിശോധനകൾ വിപുലമാക്കിയത് രോഗനിർണ്ണയത്തിനും മരണ നിരക്ക് കുറയ്ക്കാനും സഹായിച്ചതായി ആരോഗൃമന്ത്രാലയം അറിയിച്ചു

ഹോമിയോയിൽ കൊവിഡിന് മരുന്നുണ്ടെന്നോ പ്രതിരോധിക്കുമെന്നോ താൻ പറഞ്ഞിട്ടില്ലെന്നും ആരോഗൃമന്ത്രി ഫേസ്ബുക്ക് സന്ദേശത്തിൽ പറഞ്ഞു

എന്നാൽ യഥാർത്ഥ ത്തിൽ ഹോമിയോ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടന സമയത്ത് ഹോമിയോ അടക്കം എല്ലാ മേഖലകളും യോജിച്ചാണ് പ്രതിരോധിക്കുന്നത് എന്നാണ് പറഞ്ഞതെന്നും മന്ത്രി അറിയിച്ചു

കാറിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ മൂന്നു പേരും ട്രക്കിലെ ക്ലീനറുമാണ് മരിച്ചത് പരിക്കേറ്റ അഞ്ച് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

പദ്ധതിയനുസരിച്ച് സ്ത്രീകൾക്കും ദരിദ്രരായ മുതിർന്ന പൌരൻമാർക്കും കർഷകർക്കും സൌജന്യ ഭക്ഷ് ധാന്യവും ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്